കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവെ നവീക രണ പദ്ധതി ഇന്നാരംഭിക്കും ശബരിമല തീർത്ഥാടന കാലത്ത് പിഎസ്സി റാങ്ക് ലിസ്റ്റിലെ ഡ്രൈവർമാരെ കെഎസ്ആർടിസിയിൽ താൽക്കാലികമായി നിയമിക്കാൻ ഹൈക്കോടതി അനുമതി ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് പരാ ജയം ങ്ങ ൽ ഏഴിമല നാവിക അക്കാദമിക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാവിലെ പ്രസിഡന്റ് സ് കളർ അവാർഡ് സമ്മാനിക്കും മികച്ച സേവന ങ്ങൾ മുൻനിർത്തി സൈനിക കേന്ദ്രത്തിന് രാഷ്ട്രപതി നൽകുന്ന പരമോന്നത ബഹുമതിയാണ് പ്രസിഡന്റ് സ് കളർ അവാർഡ് രാവിലെ എട്ടിന് അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിലാണ് അവാർഡ് ദാനം കേഡറ്റുകളുടെ പരേഡിലും രാഷ്ട്രപതി സംബന്ധിക്കും ഇന്നലെ വൈകീട്ട് നാലരയോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ത്തിയ രാഷ്ട്രപതിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി രാമ ചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി തുടർന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ നാവിക അക്കാദമിയിലെത്തി

വ്യവസായങ്ങൾക്ക് വേണ്ട തർത്തിൽ വിദ്യാർത്ഥികളെ രൂപപ്പെ ടുത്തുന്ന കോഴ്സുകൾ സംസ്ഥാനത്തെ സർവ്വകലാശാലകൾ എത്രയും വേഗം ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജ യൻ ആവശ്യപ്പെട്ടു പല സ്ഥാപനങ്ങളും കേരളത്തിൽ വന്നപ്പോൾ അവർക്കാവശൃമായ വൈദഗ്ധൃം നേടിയവരെ ഇവിടെ കിട്ടാതായി ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണമെന്ന് തിരുവനന്തപുരത്ത് സർവ്വകലാ ശാലാ വൈസ് ചാൻസലർമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഒരു സർവ്വകലാശാലയിലെ വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു സർവ്വകലാശാലയിൽ സെമസ്റ്റർ തുടരാൻ സൌകര്യം ഉണ്ടാ വണം നഴ്സിങ്ങ് കോളജുകളിൽ ഇംഗ്ലീഷിന് പുറമെ വിദേശ ഭാഷ കളും പഠിപ്പിക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും മുഖ്യമന്ത്രി നിർദേ ശിച്ചു ശമ്പള പരിഷ്ക്കരണം ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളജ് അധ്യാ പകർ ഇന്ന് സൂചനാ പണിമുടക്ക് നടത്തും

മാവോയിസ്റ്റ് മുസ്തീം തീവ്രവാദ സംഘടനാ ബന്ധം സംബ ന്ധിച്ച സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താ വന കണ്ണടച്ച് ഇരുട്ടാക്കലാണെന്ന് മുസ്ലീം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

പാർട്ടി അംഗ്നങ്ങൾക്കെതിരെ കേസ് ചുമത്തപ്പെട്ടതിന്റെ കുറ്റബോധം കൊണ്ടാണ് വിഷയം വഴിതി രിച്ചുവിടാൻ വിവാദ പ്രസ്താവന നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധിതിരിച്ചുവിടാനാണ് സിപി ഐഎം ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയെന്ന് ഡിസിസി പ്രസി ഡന്റ് ടി സിദ്ദിഖും കുറ്റപ്പെടുത്തി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റൺവെ നവീക രണ പദ്ധതി ഇന്നാരംഭിക്കും

രാവിലെ പത്ത് മണിക്ക് അടയ്ക്കുന്ന റൺവെ വൈകീട്ട് ആറിനെ തുറക്കു

ശബരിമല തീർത്ഥാടന കാലത്ത് പിഎസ്സി റാങ്ക് ലിസ്റ്റിലെ ഡ്രൈവർമാരെ താൽക്കാലികമായി നിയമിക്കാൻ കെഎസ്ആർടി സിക്ക് ഹൈക്കോടതി അനുമതി നൽകി സ്ഥിരം ഡ്രൈവർമാരെ ശബ രിമല സർവ്വീസിന് ഉപയോഗിച്ച് താൽക്കാലികക്കാരെ മറ്റ് റൂട്ടുകൾ ഏൽപ്പിക്കാനാണ് അനുമതി

നിലവിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നിലക്കൽ വരെ മാത്രമായിരുന്നു അനുമതി

എന്നാൽ പമ്പയിൽ ഇത്തരം വാഹന ങ്ങൾക്ക് പാർക്കിങ്ങ് ഉണ്ടാവില്ലെന്ന് പ്രസ്താവനയിൽ മന്ത്രി വൃക്ത മാക്കി കെഎസ്യു ഇന്ന് സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കും തിരുവനന്തപുരത്ത് കെഎസ്യു നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ പൊലീസ് നടപടിയിൽ ഷാഫി പറമ്പിൽ എംഎൽഎ ഉൾപ്പെടെ നേതാക്കൾക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധിച്ചാണ് വിദ്യാ ഭ്യാസ ബന്ദ്

വൈകീട്ട് ഡോ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡി യത്തിൽ ബോളിവുഡ് ഇതിഹാസം അമിതാഭ് ബച്ചൻ മേള ഉദ്ഘാ ടനം ചെയ്യും ചടങ്ങിൽ ഇന്ത്യൻ സിനിമക്ക് നൽകിയ സംഭാവന കൾ മുൻനിർത്തി രജനികാന്തിനെ ഐക്കൺ ഓഫ് ഗോൾഡൻ ജൂബിലി പുരസ്കാരം നൽകി ആദരിക്കും ഗൊറാൻപാസ്ക്കൽജെവിക്കിന്റെ ഡെസ്പൈറ്റ് ദ ഫോഗാണ് ഉദ്ഘാടനം ചിത്രം ഇന്ന് അന്താരാഷ്ട്ര ബാലാവകാശ ദിനം

കുട്ടികളുടെ അവകാശ സംരക്ഷണ കൃാമ്പയിന്റെ ഭാഗമായി യൂണിസെഫ് രാഷ്ട്രപതി ഭവനും നോർത്ത് സൌത്ത് ബ്ലോക്കുകളും വൈകീട്ട് നാല് മുതൽ നീല നിറത്തിൽ പ്രകാശിപ്പിക്കും ബാലാവകാശ ദിനത്തിന്റെ ഭാഗമായി കൽപ്പറ്റയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചിട്ടുണ്ട് കൊല്ലത്ത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും വിപുലമായ പരിപാടികളോടെ ബാലാവകാശ ദിനം ആചരിക്കും

യോഗൃതാ മത്സരത്തിന്റെ ഗ്രൂപ്പ് ഇ യിൽ മസ്ക്കറ്റിൽ ഒമാനെതിരെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തോറ്റതോടെയാണ് ഇന്ത്യ യുടെ ലോകകപ്പ് പ്രതീക്ഷകൾ അവസാനിച്ചത്

അടുത്ത ശനിയാഴ്ച്ച കൊല്ലം അഷ്ടമുടിക്കായലിൽ നടത്തുന്ന പ്രസിഡന്റ് സ് ട്രോഫി ജലോത്സവത്തിന് മുന്നോടിയായി മിനി മാര ത്തൺ രാവിലെ ആരംഭിക്കും ഏഴരക്ക് ഓച്ചിറ ക്ഷേത്രത്തിൽ നിന്നാണ് മിനി മാരത്തൺ ആരംഭിക്കുന്നത് നാഗേഷ് ട്രോഫി ദേശീയ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന്റെ മത്സരങ്ങൾ നാളെ ആരംഭിക്കും കളമശ്ശേരി സെന്റ് പോൾസ് സ്റ്റേഡിയത്തിൽ കേരളം നാളെ ഝാർഖണ്ഡിനെ നേരിടും

ടൂറിസം വകുപ്പിന് പുറമെ വനം കൃഷി എന്നിവ ഉൾപ്പെടെ വകുപ്പുകളും ഏജൻസികളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രദർശന സ്റ്റോളുകളുമായി വസന്തോത്സവത്തിൽ പങ്കുചേരുമെന്ന് മന്ത്രി കട കംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് അറിയിച്ചു വൈക്കത്തഷ്ടമി ഇന്ന്

ആയിരക്കണക്കിന് വിശ്വാസികൾ ഇന്നലെ രാത്രിമുതൽ ക്ഷേത്രത്തിൽ അഷ്ടമി ദർശനത്തിനായി എത്തിയിരുന്നു

കേസ് ഡയറി തിങ്കളാഴ്ച്ച അന്വേഷണ സംഘം കോടതി യിൽ ഹാജരാക്കിയിരുന്നു വിദ്യാർത്ഥികളുടെ കഴിവിന്റേയും മികവിന്റേയും പ്രതിഭാവി ലാസമാണ് കലോത്സവങ്ങളിൽ ഉണ്ടാവേണ്ടതെന്ന് മന്ത്രി എ

കോഴിക്കോട്ട് ജില്ലാ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആദ്യ ദിവസത്തെ മത്സര ങ്ങൾ പൂർത്തിയായപ്പോൾ വിവിധ വിഭാഗങ്ങളിൽ ബാലുശേരി പേരാ മ്പ്ര കൊയിലാണ്ടി കോഴിക്കോട് റൂറൽ ഉപജില്ലകളാണ് മുന്നിൽ ട യാക്കാക്ക തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർസെക്കന്ററി സ്കൂളിൽ തുടക്കമായി ജില്ലാ പഞ്ചാ യത്ത് പ്രസിഡന്റ് മേരി തോമസ് ഭദ്രദീപം തെളിയിച്ചു നടൻ വി

സംവിധായകൻ കല വൂർ രവികുമാർ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു ദേശീയ നഗര ഉപജീവന ദൌതൃത്തിന്റെ ഭാഗമായി കൊല്ലം കോർപ്പറേഷൻ നിർമ്മിച്ച തറവാട് വൃദ്ധസദനം മന്ത്രി ജെ

വൃദ്ധജിന സംരക്ഷണം സമൂ ഹ ത്തിന്റെ ഉത്ത ര വാ ദി ത്ത മാ ണെന്ന് മന്ത്രി പറഞ്ഞു പാലാരിവട്ടം മേൽപ്പാല അഴിമതിക്കേസിൽ മുൻ മന്ത്രി വി

ഇ ബ്രാഹിം കുഞ്ഞിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോ ടതി ഇന്ന് പരിഗണിക്കും

കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആറാമത്തെ കേസിലും മുഖ്യപ്രതി ജോളിയെ അറസ്റ്റ് ചെയ്യാൻ താമരശേരി കോടതി അനു മതി നൽകി പൊന്നാമറ്റും വീട്ടിലെ അന്നമ്മയുടെ കൊലപാതകവു മായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ഇടുക്കി കഞ്ഞിക്കുഴിയിൽ ഏഴ് കിലോ കഞ്ചാവുമായി മൂന്ന് പേർ പിടിയിലായി

നിർമ്മാണ ജോലി കൾ അടുത്ത വർഷം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കാഞ്ഞങ്ങാട് അതിഞ്ഞാൽ കോയാപ്പള്ളി മഖാം ഉറൂസ് ഇന്നാരം ഭിക്കും

വനിത കമ്മീഷൻ കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥിനികൾക്കായി സംഘടിപ്പിച്ച മുഖാമുഖം ബോധവൽക്കരണ പരിപാടി കമ്മീഷനംഗം എം

സുരക്ഷിതത്വം സ്വന്തം കയ്യി ലാകണമെന്നും അതിനായി അവകാശങ്ങൾ അറിയുന്നവരായി ഓരോ പെൺകുട്ടിയും മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു